ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന സംവാദ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അവ കായികക്ഷമതയാർന്ന രാഷ്ട്രത്തിനായി ഫിറ്റ്നസ് കി ഡോസ് ആധാ ഘണ്ഠാ റോസ് അഥവാ ് കായികക്ഷമതയുടെ ഔഷധം ദിവസവും അരമണിക്കൂർ വ്യായാമം എന്ന പുതിയ മുദ്രാവാകൃവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ആരോഗ്യകരമായ ഭക്ഷണം ജീവിതരീതിയുടെ ഭാഗമാകുന്നത് സന്തോഷകരമാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഇതിൽ വൃക്തികളും കുടുംബങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസത്തേക്ക് പരിശീലനം നഷ്ടപ്പെട്ടാലും ഒരു ദിവസത്തെ വ്യായാമം ഒഴിവാക്കില്ലെന്ന് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി പ്രധാനമന്ത്രിയോട് പറഞ്ഞു രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാകാൻ പരിശ്രമിക്കുന്നതിലൂടെ സ്വന്തം ശാരീരിക ക്ഷമത ഉറപ്പാക്കാനാകുമെന്ന് വനിത ഫുട്ബാൾ താരം അദിതി ചൌഹാൻ പറഞ്ഞു

കായികക്ഷമതയ്ക്ക് യോഗയും ജീവിതത്തിലെ അച്ചടക്കവും പ്രധാനപ്പെട്ടതാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത സ്വാമി ശിവാധ്യാനം സരസ്വതി പറഞ്ഞു മോഡലും നടനുമായ മിലിന്ദ് സോമൻ പാരാലിമ്പിക് ജാവലിൻ സർണ്ണ മെഡൽ ജേതാവ് ദേവേന്ദ്ര ജജാരിയ ജ്മ്മു കശ്മീർ ഫുട്ബോൾ താരം അഫ്ഷൻ ആഷിക് ഭാരത ശ്രിക്ഷ മണ്ഡലിന്റെ മുകുൾ കനിത്കർ എന്നിവരും പ്രധാനമന്ത്രിയൂമായി സംവദിച്ചു

കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം ജനങ്ങളുടെ പ്രസ്ഥാനമായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

സംസ്ഥാനങ്ങൾക്ക് കോവിഡ് പ്രതിരോധ നടപടികൾക്കായി ഇതിലൂടെ കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപനം നടത്തവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഉയർന്നതോതിലുള്ള പരിശോധന കൃത്യമായ നിരീക്ഷണ സംവിധാനം ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യപ്പിരിക്ഷ എന്നിങ്ങനെ കേന്ദ്രീകൃതവും കാര്യക്ഷമവുമായി പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാക്കിയത് എന്ന് ആരോഗ്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തു

കോവിഡ് ബാധിച്ച് ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം രാജ്യത്ത് ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രി കോവിഡ് മരിക്കുന്നത്

തന്റെ നിയോജക മണ്ഡലമായ ബലഗവിയിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്കു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വൃക്തിയായിരുന്നു സുരേഷ് അംഗഡിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു പെട്ടെന്നുള്ള വിയോഗം ഞെട്ടൽ ഉളവാക്കിയതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച എംപിയും മന്ത്രിയുമായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു

സ്ഥിരീകരിച്ചു

എന്നാൽ നിർദിഷ്ട സമയത്തിന് മുമ്പ് തന്നെ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യക്കു സാധിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു

തീരുമാനിച്ചിരുന്നതിനേക്കാൾ എട്ട് ദിവസം മുമ്പാണ് ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്

സർവകലാശാല പ്ലസ്ടു കൌൺസിൽ എൻഎസ്എസ് യൂണിറ്റുകൾ പ്രോഗ്രാം ഓഫീസർമാർ എൻഎസ്എസ് വോളന്റിയർമാർ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ

ഏറെ നാളായി പരിഗണിക്കപ്പെടാതിരുന്നതും ഏറെ പ്രതീക്ഷ അർപ്പിക്കപ്പെട്ടിരുന്നതുമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് പാർലമെന്റ് പാസ്സാക്കിയത് ഇത് രാജ്യത്തെ കഠിനാധ്വാനികളായ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനമേകുകയും ചെയ്യുമെന്നു പ്രധാനമന്ത്രി പറഞ്ഞു

ഭാഭ ആണവോർജ കേന്ദ്രം ഡയറക്ടറായും ന്യൂക്ലിയർ സബ്മറൈൻ പ്രോഗ്രാം പ്രോജക്ട് ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശനിയാഴ്ച നടത്തുന്ന വിർചൽ ഉച്ചകോടിയെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നതെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ അറിയിച്ചു

തദ്ദേശസിയ്ക്ടരണ മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു

സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലാണ് കീം റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചത്